താഴ്വരയിൽ പുതുയുഗപ്പിറവി കുറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഒഴികെ എല്ലായിടത്തും കനത്ത മഴ വ്യാപകമായ നാശനഷ്ടം

മഴയും വെള്ളപ്പൊക്ക സാധൃതയും കേന്ദ്രം വിലയിരുത്തി

സംയുക്ത സാങ്കേതിക സമിതി രൂപീകരിയ്ക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും ധാരണയായി

കഴിഞ്ഞ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെയും രാജ്യം മുഴുവനുമുള്ള ജനങ്ങളെയും അഭിനന്ദിക്കുന്നതായും ഇത് പുതുയുഗപ്പിറവിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

സർദാർ പട്ടേൽ ബാബ സാഹിബ് അംബേദ്കർ ശ്യാമപ്രസാദ് മുഖർജി അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ സ്വപ്നം ഇതിലൂടെ യാഥാർഥ്യമായിരിക്കുന്നെന്നും മോദി പറഞ്ഞു ചരിത്രപരമായ തീരുമാനമാണിത്

ജമ്മു കാശ്മീരിലെ കേന്ദ്രഭരണപ്രദേശമാക്കാനുള്ള തീരുമാനം നന്നായി ചിന്തിച്ചെടുത്താണെന്നും മോദി പറഞ്ഞു കാശ്മീരിൽ സുതാര്യവും നിഷ്പക്ഷവുമായി ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തും ലഡാക്ക് കേന്ദ്രഭരണപ്രദേശമായി തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന ബ്ലോക്ക് വികസന കൌൺസിലുകളുടെ രൂപീകരണം എത്രയും വേഗം പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ ഗവർണ്റോട്ട് അഭ്യർത്ഥിച്ചു ലോകത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര്യ്ക്ക്രേന്ദ്രമായി മാറാനുള്ള ശേഷി കാഷ്മീരിനും ലഡാക്കിനുമുണ്ട് ജമ്മുകാശ്മീരിൽ പതിറ്റാണ്ട്രൂകളായി നടന്നുവന്ന കുടുംബഭരണം യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിൽനിന്നു തടഞ്ഞു

ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ പ്രശ്നങ്ങളാണ് കാശ്മീരിൽ പൊതു സ്ഥകാര്യ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് ജീവനക്കാർക്ക് തുല്യത ഉറപ്പാക്കും സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപം വരുമെന്നും അദ്ദേഹം പറഞ്ഞു

മോദി അവസാനിപ്പിച്ചത്

ഇടുക്കിയിലും മഴ ശക്തമാണ്

ആശങ്കപ്പെടേണ്ട ജല സാഹചര്യമില്ലെന്നും രക്ഷാപ്രവർത്തനത്തിന് കേരളം പൂർണ്ണ സജ്ജമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങിയിട്ടുണ്ട്

രണ്ട് എസ്റ്റേറ്റ് ലയങ്ങൾ ക്ഷേത്രം മുസ്ലിം പളളി നിരവധി വീടുകൾ എന്നിവ മണ്ണിനടിയിലായതായി റിപ്പോർട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് ദൂരന്ത നിവാരണ സേനയും സൈന്യവും എത്തിയിട്ടുണ്ട്

വടകര വിലങ്ങാട് മണ്ണിനടിയിലായി

പെരിയാർ വളപട്ടണം കുതിരപ്പുഴ കുറുമൻ പുഴ എന്നീ പുഴകളിൽ ജല നിരപ്പ് ഉയരുമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ റിപ്പോർട്ട് നൽകി സാധ്യതയുളളതിന

സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയിലെത്തി സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു ജില്ലാ കേന്ദ്രങങളിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്

കഴിഞ്ഞ തവണ പ്രളയം കെടുതി വിതച്ച ചെങ്ങന്നൂരിലും പമ്പാനദിയുടെ തീരത്തും കഴിയുന്നവർ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി

വടക്കൻ ജില്ലകളിൽ മൂന്നു ദിവസമായി കനത്ത മഴയാണ് നിരവധി മേഖലകൾ ഒറ്റപ്പെട്ടു

കേരളമാകെ കനത്ത മഴയാണ് വയനാട് മേപ്പാടിയിൽ രാത്രി സഞ്ചരിക്കാനാവുന്ന ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാം ഒരുക്കാനുള്ള നടപടിയെടുത്തിട്ടുണ്ട് മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണം എല്ലാവിഭാഗങ്ങളും സജ്ജമാണ്

റൺവേയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്നുണ്ട്

ബംഗളൂരു കണ്ണൂർ കാർപാർ എക്സ്പ്രസ് ചണ്ഡീഗഡ് കൊച്ചുവേളി സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് മംഗളൂരു യശ്വന്ത് പൂർ എക്സ്പ്രസ് കാർപാർ യശ്വന്ത് പൂർ എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത് ആലപ്പുഴയിൽ ട്രാക്കിൽ മരം വീണതിനെതുടർന്ന് ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്

അപകടനില തരണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിയ യോഗത്തിൽ സംസ്ഥാനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിനായി അടിയന്തിര സഹായങ്ങൾ നൽകാൻ കേന്ദ്ര ദുരന്ത പരിഹാര കമ്മിറ്റിയോട് നിർദ്ദേശം നൽകി

വെളളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രു ദേവേന്ദ്ര ഫട്നാവിസാണ് ഇക്കാര്യം അറിയിച്ചത് അൽമാട്ടി ഡാം തുറന്നാൽ സംഗ്ലി കോലാപൂർ എന്നീ ജില്ലകളിലെ വെളളപ്പൊക്കത്തിന് ആശ്വാസമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങിന്റെ അദ്ധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഡി

സി യോഗമാണ് തീരുമാനം അറിയിച്ചത്

പതിവു പരിശീലനത്തിനിടെയാണ് വിമാനം അപകടത്തിൽ പ്പെട്ടത്

അപകടത്തെകുറിച്ച് വ്യോമസേന അന്വേഷണം ആരംഭിച്ചു

ദേശീയോദ്ഗ്രഥനത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മധ്യപ്രദേശിലെ ഇൻഡോറിൽ ശ്രീ വൈഷ്ണവ് വിദ്യാപീഠ് വിശ്വ വിദ്യാലയയിലെ ബിരുദ ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണപ്രദേശങ്ങളിലെയും സാങ്കേതിക വിദ്യാഭ്യാസ സെക്രട്ടറിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

രാജ്യത്തെ വിവിധ പ്രാദേശിക വാർത്താ വിഭാഗങ്ങളെ ഒരേ സമയം യോജിപ്പിച്ചുകൊണ്ടുളള പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും